ന്യൂഡൽഹിയിൽ പുതിയ വിദ്യാഭ്യാസ നയത്തെ ആസ്പദമാക്കി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ഗവർണർമാരുടെ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തൈപ്പറമ്പ് കുടിവെള്ള പദ്ധതി ഗ്യാസ് ശ്മശാനം കുടുംബാരോഗൃ ഉപ്ക്കേന്ദ്രം കുടുംബാരോഗൃ കേന്ദ്രത്തിന്റെ ഒന്നാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം എന്നിവ ഓൺലൈനായാണ് മുഖ്യമന്ത്രി നിർവ്പ്പിച്ചത്